പിഎം കിസാൻ സമ്മാൻ നിധിയുടെ എട്ടാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുക ഒമ്പതര കോടി കർഷക കുടുംബങ്ങൾക്ക്

കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിലെ ആരോഗൃമന്ത്രിമാരുമായി കോവിഡ് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് പ്രതിരോധത്തിൽ ആരോഗ്യമേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനൊപ്പം മനുഷൃവിഭവശേഷി ഉയർത്തുന്നതും പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

നിലവിൽ കോവിഷീൽഡിന്റെ രണ്ട് ഡോസുകൾ തമ്മിലുള്ള ഇടവേള നാല് മുതൽ എട്ട് ആഴ്ച വരെയാണ് അതേസമയം കോവാക് സിന്റെ ഡോസുകൾ തമ്മിലുള്ള ഇടവേളയ്ക്ക് മാറ്റമുണ്ടാകില്ല കോവിഡ് മുക്തരായവർ െ മാസത്തിനു ശേഷമേ വാക്സിൻ സ്വീകരിക്കാവൂ എന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ സ്വീകരിക്കാൻ തടസമില്ലെന്നും സമിതി വൃക്തമാക്കി

ഒന്നാംഘട്ട പരീക്ഷണ ഫലങ്ങൾ പരിശോധിച്ച ശേഷമാണ് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്

ടി

സംസ്ഥാനത്തിനകിൽ്ട് ഈ സർട്ടിഫിക്കറ്റിന് ഏഴു ദിവസത്തെ സാധുത ഉണ്ട്രീയ്ക്കിരിക്കുമെന്നും മഹാരാഷ്ട്ര സർക്കാർ വൃക്തമാക്കി

എസ്

കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ആവശ്യമായ പിന്തുണ നൽകിയതിന് കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം നന്ദി അറിയിച്ചു

കോവിഡ് മൂലം അനാഥരായ കുട്ടികൾക്കായി മധ്യപ്രദേശ് സർക്കാർ സൌജന്യ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി ്ര്പിയ സുബ്ബലക്ഷ്മി

അതേസമയം പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ബിഹാറും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി

സർക്കാർ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണുമായി ജനങ്ങൾ പൂർണമായി സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

സംസ്ഥാനത്ത് താമസിക്കുന്നതായി തെളിയിക്കുന്ന ഏതു രേഖയും ഉപ്പയോഗിച്ച് വാക്സിൻ സ്വീകരിക്കാം

ആദ്യഘട്ടത്തിൽ ഓക്സിജൻ ഉല്പാദന ഉപകരണങ്ങൾ ഇറ്റലിയിൽ നിന്ന് ഇന്തൃയിൽ എത്തിയിരുന്നു

അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫ്രോണിൽ ചർച്ച നടത്തി

കോവിഡ് മഹാമാരിയുടെ കാലത്തു കോടതി ്നടപടിക്രമങ്ങൾ കൃത്യമായി മാധ്യമങ്ങൾക്കു കൈമാറാൻ ഇതിലൂടെ സാധിക്കും സുപ്രീം കോടതി നടപടികളും വിധി ന്യായങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെ ചീഫ് ജസ്റ്റിസ് പ്രശംസിച്ചു

ജില്ലയിലെ മോർച്ചുൾ വനമേഖലയിൽ പോലീസും കമാൻഡോകളും നടത്തിയ തിരച്ചിലിനിടെ നക്സലുകൾ വെടിയുതിർക്കുകയായിരുന്നു

ശനിയാഴ്ച വരെ ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചാൽ തമിഴ്നാട് കർണാടക ഗോവ ഗുജറാത്ത് എന്നിവിടങ്ങളിലും മഴ കനക്കുമെന്നാണ് സൂചന